പദ്ധതി രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ സമൂല പരിവർത്തനം സൃഷ്ടിക്കുമെന്ന് നരേന്ദ്രമോദി

വ്യക്തമാക്കണമെന്ന് യു

രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ നൂറ് ശതമാനം വി വി പാറ്റ് മെഷീൻ ഉപയോഗിക്കുവാൻ സജ്ജമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

മാവോയിസ്റ്റ് കീഴടങ്ങി

ഗെയിംസിൽ ഇന്ന് ഷൂട്ടിംഗിലും വനിതകളുടെ കബഡിയിലും ടെന്നീസിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ

പാവപ്പെട്ടവർക്ക് മികച്ച ആരോഗൃ സംരക്ഷണം മിതമായ ചിലവിൽ ഈ പദ്ധതി വഴി ലഭ്യമാകും ഗുജറാത്തിലെ ജുനഗഡിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കവേയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം മെഡിക്കൽ ഉപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ പറഞ്ഞത്

ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി മരുന്നുകൾ വിലകുറച്ച് നൽകുന്നുണ്ട് ശുചിത്വത്തിന് ഗവൺമെന്റ് നൽകുന്ന ഉൌന്നൽ ആഗോളമായിതന്നെ അംഗീകരിക്കപ്പെട്ടു

ഗുജറാത്ത് ഫോറൻസിക് സയൻസസ് സർവ്വകലാശാലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട സമിതി നൽകുന്ന എ ഗ്രേഡ് ലഭിച്ചത് അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുറ്റവാളികൾക്ക് ഡി എൻ എ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കാൻ ന്യായാധിപൻമാരെ ഫോറൻസിക് വിദഗ്ധൂർ സഹായിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

തിരിച്ചറിയൽ അടയാളങ്ങളായി ഇപ്പോൾ രേഖപ്പെടുത്തുന്ന വിരലടയാളം കൃഷ്ണമണി സ്കാനിംഗ് എന്നിവയ്ക്കൊപ്പം മുഖവും വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം ഓതന്റിഫിക്കേഷൻ സർവ്വീസ് ഏജൻസീസ് ഓതന്റിഫിക്കേഷൻ യൂസർ ഏജൻസീസ് സർട്ടിഫൈഡ് ബയോമെട്രിക് ഡിവൈസ് പ്രൊവൈഡേഴ്സ് എന്നിവർക്ക് യു

ഐ നൽകിയ ഔദ്യോഗിക സർക്കുലറുകളിൽ ഇക്കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട് രാജ്യത്ത് ഇപ്പോൾ മൊബൈൽ സിം കാർഡ് എടുക്കുന്നതിനും ബാങ്ക് പൊതുവിതരണ കേന്ദ്രം ഓഫീസ് ഹാജർ എന്നിവയ്ക്കാണ് ആധാർ നിർബന്ധമാക്കിയിട്ടുള്ളത് പ്രായമേറുമ്പോൾ വിരലടയാളം ലഭൃമല്ലാതെ വരുന്നതും സാങ്കേതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്

മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ വാർത്താ ലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മധ്യപ്രദേശ് രാജസ്ഥാൻ നിയമസഭാ ഛത്തീസ്ഗഡ് മിസ്സോറാം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നടക്കുമെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു

റാവത്ത് പറഞ്ഞു

ഇതുസ്സ്ബന്ധിച്ച് ഭരണഘടനാ ഭേദഗതിയ്ക്കുള്ള നടപടികൾ പൂരോഗമിക്കുകയാണെന്നും ശ്രീ

റാവത്ത് ഔറംഗബാദിൽ മാധ്യ്മ പ്രവർത്തകരോട് പറഞ്ഞു

ഡി എം

ഐ എ

എം

ദിനകരനെ പിന്തുണയ്ക്കുന്നവരാണ് ഈ എം എൽ

ഐ എ ഡി എം

ഐ

ഡി എം

എൽ

എ ഡി എം

കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ ചേരുന്നു

ചീഫ് സെക്രട്ടറി സുപ്രീംകോടതിയിൽ നല്കിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്

മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി കേന്ദ്ര ജലകമ്മീഷൻ ചെയർമാനെ തലവനാക്കി പുനഃസ്ഥാപിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു പ്രളയം ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീരുമാനമെടക്കാൻ സമിതിക്ക് അധികാരം നല്കണം ദൈനംദിനകാരൃങ്ങൾക്കായി മാനേജ്മെന്റ് സമിതി വേണം എന്നിവയാണ് കേരളം സത്യവാങ്മൂലത്തിലൂടെ ഉന്നയിച്ച മറ്റ് കാര്യങ്ങൾ അണക്കെട്ട് തുറന്നതിലുണ്ടായ പാളിച്ചകളാണ് പ്രളയത്തിന് വഴി തുറന്നതെന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതിയിൽ കേരളം നിലപാട് വ്യക്തമാക്കിയത്

പോല്പീസ് ഇൻസ്പെക്ടർ ജനറൽ ജി

സിംഗിന് മുമ്പാകെ പപ്പ്ട്ടിദ്സിംഗ് എന്ന മാവോയിസ്റ്റാണ് കീഴടങ്ങിയത്

അതേസമയം ബിജാപൂർ ജില്ലയിലെ കുട്റ്റു പ്രദേശത്ത് നിന്ന് മൂന്ന് മാവോയിസ്റ്റുകളെ പോലീസ് അറസ്റ്റു ചെയ്തു

പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീടുകൾ ലഭ്യമായ സംസ്ഥാനത്തെ സ്ത്രീകളുമായി സംസാരിക്കാൻ അവസരമുണ്ടായെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

ഇപ്പോൾ പാവപ്പെട്ടവർക്ക് വീടുകൾ ലഭ്യമാകുന്ന വാർത്തകൾ കേൾക്കുന്നു

ഇന്ന് രാവിലെ കുഷാൽ നഗർ പട്ടണം സന്ദർശിക്കുന്ന മന്ത്രി ദുരിതബാധിതരെ കാണും അവിടെ നിന്ന് മഡാപ്പൂർ മെഡിക്കേരി എന്നിവിടങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തും ജില്ലാ ഭരണാധികാരികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും

മനുദാകർ ക്ടോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണം നേടിയിരുന്നു

ഏഷ്യൻ ഗെയിംസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിജയിയാണ് ശാർദൂൽ

പുരുഷവിഭാഗം സിംഗിൾസിൽ ഇന്ത്യൻതാരം ഗുണേശ്വരൻ കൊറിയയുടെ ക്വൻ സൂൻവൂവിനെ പരാജയപ്പെടുത്തി സെമിയിൽ പ്രവേശിപ്പിച്ചു